സമരം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൂസ്റ്റണിലെ ഹൌഡി മോദി സമ്മേളനത്തിൽ പങ്കെടുത്തത് അരലക്ഷത്തിലേറെ ഇന്ത്യൻ അമേരിക്കൻ വംശജർ

നിർണായകമെന്ന് അമേരിക്കൻ പ്രസ്സിഡ്ന്റ് ഡോണൾഡ് ട്രംപ്

ഐകൃത്തിനും അഖണ്ട്ഡ്ത്യ്ക്കും വേണ്ടിയുള്ള നിർണായക ചുവടു വയ്പെന്ന് കേന്ദ്രമന്ത്രി ്അമിത്ഷാ

പ്രതിജ്ഞാബദ്ധമാണെന്ന് സൌദി അറേബ്യ

ഇന്ത്യയ്ക്ക് തോൽവി പരമ്പര സമനിലയിൽ

അമേരിക്കയിൽ ഹൂസ്റ്റണിലെ എൻ

ജി സ്റ്റേഡിയത്തിൽ അമ്പതിനായിരത്തിലധികം ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാർ അണിനിരന്ന ഹൌഡി മോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും പരിപാടിയിൽ പങ്കെടുത്തു

ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് പരാമർശിക്കാതെ ഭീകരതയ്ക്ക് പിന്നിൽ ആരാണെന്ന് ലോകത്തിന് അറിവുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഇന്ത്യ അമേരിക്കയുമായി കൈകോർക്കു്മ്പോൾ പുതിയ ചരിത്രമാണ് രചിക്കപ്പെടുന്നതെന്ന് പ്രധാിജ്മൃത്തി പറഞ്ഞു ഭീകരവാദത്തെ ചെറുക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒറ്റ്ഒക്കട്ടായ് നീങ്ങുകയാണെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പറഞ്ഞു

മോഡി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു

പ്രസംഗശേഷം ശ്രീ

അതിനുശേഷം ഹൂസ്റ്റണിൽ ഗാന്ധി മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മുതൽക്കൂട്ടാകുന്ന നിർണായക ചുവടുവയ്പാണ് കേന്ദ്രം കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു

കാശ്മീർ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്തു നില്ചപാട് അവിടുത്തെ വികസനത്തിന് വഴിയൊരുക്കുമെന്നും പാട്നയിൽ ജനജാഗരൺ സഭയെ അഭിസംബോധന ചെയ്യവേ ശ്രീ സിങ് വ്യക്തമാക്കി

നാല് ലക്ഷത്തിലേറെ വോട്ടർമാരാണ് ഒമ്പത് മത്സരാർത്ഥികളുടെ വിധി നിശ്ചയിക്കുക സിറ്റിംഗ് എം എൽ എ അശോക് സിംഗ് ചന്ദലിനെ കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ഈ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഛത്തീസ്ഗഢിൽ മാവോയിസ്റ്റ് ബാധിത മേഖലയായ ദന്തേവാഡ നിയമസഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നു

രാവിലെ ആറിന് തെരഞ്ഞെടുപ്പ് ഏജന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിദ്ധ്യത്തിൽ മോക്പോൾ നടന്നു

വൈകീട്ട് ആറുവരെയാണ് വോട്ടെടുപ്പ്

സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട ചർച്ചയില്ലാണ് മുന്നണികൾ നാളെ സി

ഐ എം സെക്രട്ടേറിയറ്റും എൽഡിഎഫ് യോഗവും ചേരും കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിട്ട്യോഗവും യുഡിഎഫ് യോഗവും വരുംദിവസങ്ങളിൽ ചേരും സ്ഫാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട ചർച്ചയിലാണ് ബിജെപി വിട്ടിയൂർകാവ് കോന്നി അരൂർ മഞ്ചേശ്വരം എറണാകുളം എന്നീ മണ്ഡല്ങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്

ന്യൂഡൽഹിയിൽ പി

ഐക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത് സൌദി അറേബൃയിലെ എണ്ണ സംസ്ക്കരണശാലയുടെ നേർക്കുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണയുടെ ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നം അന്താരാഷ്ട്ര സമൂഹത്തെ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും സൌദി അംബാസഡർ പറഞ്ഞു ഇന്ത്യയിലേയ്ക്ക് എണ്ണ് തടസമില്ലാതെ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

എ ഇ ഇന്ത്യാ ഉന്നതതല സംയുക്ത ദൌത്യസംഘത്തിന്റെ ഏഴാമത് യോഗം അവലോകനം അബുദാബിയിൽ ചേർന്നു കേന്ദ്ര വാണിജ്യ വ്യവസായ റെയിൽവേ മന്ത്രി പീയുഷ് ഗോയലും അബുദാബി കിരീടാവകാശിയും ചെയർമാനുമായ ഷെയ്ഖ് ഹമീദ് ബിൻ സയദ് അൻ നഹ്യാനും യോഗത്തെ അഭിസംബോധന ചെയ്തു അഞ്ച് ട്രില്ല്യൻ ഡോളർ സാമ്പത്തിക ശക്തിയെന്ന ഇന്ത്യൻ സ്വപ്നത്തിന് കരുത്തേകാൻ യു

ഇ യ്ക്ക് നിർണ്ണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ഒൻപത് വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക വിജയിച്ചത്

കലാശിച്ചു ആദ്യ മൽസരം മഴ കാരണം തടസ്സപ്പെട്ടിരുന്നു രണ്ടാം മൽസരം ഇന്ത്യ ഏഴ് വിക്കറ്റിന് വിജയിച്ചിരുന്നു

മരട് കേസിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സത്യവാങ്മൂലം നൽകിയിരുന്നു

കോട്ടയ്ക്കൽ ചങ്കുവെട്ടി വൈദ്യശാല ഒ

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധ്യക്ഷ്യം വഹിക്കും

കോലഞ്ചേരിയിൽ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

ഇവിടെ ഇറങ്ങേണ്ടിയിരുന്ന രണ്ട് വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടു കർശനമായ നടപടി ഉണ്ടാകുമെന്നും ദുബായ് ഗവൺമെന്റ് വ്യക്തമാക്കി

എ ഇ എമിറേറ്റിന് കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ പൂജ്യ ബ്രഹ്മവിഹാരി സ്വാമിയും ഡോ

ആർ ഷെട്ടിയും ചേർന്ന് ഇതിനുള്ള ഔദ്യോഗിക പത്രം ഏറ്റുവാങ്ങി